നരേന്ദ്രമോദിയെ ഇന്ന് കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും

ഡി

പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും രാജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിച്ചു ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ലോക്സഭ പിരിച്ചുവിടണമെന്ന പ്രമേയം പാസാക്കി യത് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി അദ്ദേഹ ത്തിന്റെ രാജിക്കത്ത് രാംനാഥ് കോവിന്ദിന് കൈമാറി പുതിയ മന്ത്രിസഭ അധി കാരമേൽക്കുന്നതുവരെ സ്ഥാനത്ത് തുടരാൻ രാഷ്ട്രപതി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ജൂൺ മൂന്നിനാണ് പതിനാറാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത് ഇന്ന് വൈകീട്ട് അഞ്ചിന് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ചേരുന്ന പുതുതായി തെരഞ്ഞെടുത്ത എം പിമാരുടെ യോഗം നരേന്ദ്രമോ ദിയെ കക്ഷിനേതാവായി പ്രഖ്യാപിക്കും

ജെ പി എം പി മാരുടെ യോഗവും ചേരും നാളെ രാഷ്ട്രപതിയെ കണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് രൂപീകരണത്തിന് ഔപചാരികമായി അവകാശം ഉന്നയിക്കും പുതിയ മന്ത്രിസഭ ഈമാസം ദാന് സത്യപ്രതിജ്ഞ ചെയ്യും പുതുതായി തെര ഞ്ഞെടുത്ത എം പിമാരുടെ പട്ടിക അന്തിമമായി തയ്യാറാക്കാൻ തെരഞ്ഞെ ടുപ്പ് കമ്മീഷൻ ഇന്ന് യോഗം ചേർന്നേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്ര പതിക്ക് എം പിമാരുടെ പട്ടിക കൈമാറിയ ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന്റെ ഔപചാരിക നീക്കങ്ങൾ ഉണ്ടാവുക

ജെ

എം

തൃണമൂൽ കോൺഗ്രസും വൈ എസ്

ജെ

ജെ

സി

തെലുഗുദേശം ഇന്ത്യൻ യൂണിയൻ മുസ്തിംലീഗ് സി

ഡി

ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെ ടുത്ത് പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധി രാജി സന്നദ്ധത അറിയിച്ചിരുന്നു

എ അധ്യക്ഷ സോണിയാഗാന്ധി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോ ഹൻ സിംഗ് തുടങ്ങിയവരടക്കം പങ്കെടുക്കുന്ന പ്രവർത്തക സമിതി യോഗം പരാജയ കാരണങ്ങൾ വിലയിരുത്തും രദ്ദേഷ്ടങ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടപടികൾ വിജയകരമായി പൂർത്തിയാ ക്കാൻ സഹായിച്ച എല്ലാവരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നന്ദി അറിയിച്ചു

മുപ്പത് വർഷത്തെ ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനത്തിലേക്ക് സംസ്ഥാനത്തിന് എത്താനായെന്നും ടിക്കാറാം മീണ അറിയിച്ചു

കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം വയനാടായിരുന്നു

ഡി

ഐ പോപ്പുലർഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി വോട്ടുകളിൽ വൻ ചോർച്ചയുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു രദ്ദേഷ്ടങ വോട്ടെണ്ണലിനെ തുടർന്നുണ്ടായ അക്രമസംഭവങ്ങളോടനുബന്ധിച്ച് വ ടകര മേഖലയിൽ രണ്ടുദിവസം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു

പുറപ്പെട്ടത്ത പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനു നേരെ ഇന്നലെ അർദ്ധരാത്രിയുണ്ടായ കല്ലേറിൽ ഓഫീസിന്റെ ചില്ലുകൾ തകർന്നു അക്രമ ത്തിന് പിന്നിൽ സി

എം ആണെന്ന് നിയുക്ത എം പിയും ഡി സി സി പ്രസിഡന്റുമായ വി കെ ശ്രീകണ്ഠൻ ആരോപിച്ചു

ഡി എഫിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെ പാലക്കാട്ടെ എൽ

എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം

കോൺഗ്രസ് ജെ ഡി എസ് സഖ്യം തുടരാനും ഇന്നലെ ബംഗളുരുവിൽ ചേർന്ന യോഗം തീരുമാനിച്ചു

ജെ പിക്കാണ് വിജയം

എഫ് ഗവൺമെന്റിന്റെ മൂന്നാം വാർഷികം ഇന്ന് നാലാം വർഷ ത്തിലേക്ക് കടക്കുന്ന ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഭൂരിപ ക്ഷവും നിറവേറ്റിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപു രത്ത് പറഞ്ഞു രാജ്യത്തിന് മാതൃകയായി ഒട്ടേറെ പദ്ധതികൾ കഴിഞ്ഞ മൂന്നു വർഷത്തിനിടെ ആവിഷ്കരിച്ചതായി മാധ്യമങ്ങൾക്ക് നൽകിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടില്ല

മരണസംഖ്യ ഇനിയും ഉയർന്നേക്കു മെന്നാണ് സൂചന നിരവധി ആളുകൾക്ക് പരിക്കേറ്റു

സമുച്ചയത്തിന്റെ ടെറ സിൽ താൽക്കാലിക ഷെഡിലെ ട്യൂഷൻ സെന്ററിൽ പഠിക്കാനെത്തിയ വിദ്യാർഥികളാണ് മരിച്ചവരിൽ ഏറെയും കെട്ടിടത്തിൽ നിന്ന് ചാടിയും പുക യിൽ ശ്വാസം മുട്ടിയുമാണ് ഏറെപ്പേരും മരിച്ചത് സംഭവ സമയത്ത് അമ്പ തോളം വിദ്യാർഥികൾ സെന്ററിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം പ്രധാ നമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ ദുഃഖവും നടുക്കവും അറിയിച്ചു ഗുജ റാത്ത് ഗവൺമെന്റ് മരിച്ച വിദ്യാർഥികളുടെ കുടുംബങ്ങൾക്ക് നാലുലക്ഷം രൂപവീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു സംഭവത്തെപ്പറ്റി അടിയന്തിര അന്വേ ഷണത്തിനും ഉത്തരവിട്ടു ദൃശ്ശശ കോട്ടയം നാഗമ്പടത്തെ പഴയ റെയിൽവെ മേൽപ്പാലം പൊളിച്ചു തുട ങ്ങി

പാലം പൊളിക്കുന്നതിന്റെ ഭാഗ മായി ഇന്നും നാളെയും കോട്ടയം വഴി ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി

രുട്ട്ട്ട്ട്ട്ട്ട ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡ റ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് രാവിലെ നടക്കും കരസേന മേധാ വി ജനറൽ ബിപിൻ റാവത്ത് മുഖ്യാഥിതിയായി പങ്കെടുക്കും

എസ്

കേരളത്തിൽ കോഴിക്കോട് എറ ണാകുളം തിരുവനന്തപുരം കേന്ദ്രങ്ങളിലാണ് പരീക്ഷ

ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളജ് അധ്യാപകർക്ക് നടപടി ബാധകമാണ്

രദ്ദേഷ്ടങ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണക്കടത്തിന് കൂട്ടുനിന്ന കസ്റ്റംസ് സൂപ്രണ്ട് രാധാകൃഷ്ണനെ റവന്യൂ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തു

നാളെയാണ് ഇളനീരാട്ടം രദേഷ്ടെടു കോഴിക്കോട്ട് ജില്ലാതല ശുചിത്വ കോൺഫറൻസ് മന്ത്രി ടി

ജില്ലയെ മാലിന്യമുക്തമാക്കുന്ന നൂതന പദ്ധതികളുടെ നടത്തിപ്പും വിലയിരുത്തലും യോഗത്തിലുണ്ടാകും

ഈറോഡ് കരൂർ തിരുച്ചിറപ്പിള്ളി ഫോർത്ത് സെക്ഷനിൽ എഞ്ചിനീയറിംഗ് ജോലികൾ നടക്കുന്നതിനെ തുടർന്നാണിത്

മംഗലാപുരത്തുനിന്ന് ്യൻബാദിലേക്ക് നാളെ ഉച്ചകഴിഞ്ഞ് പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടായിരിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു കണ്ണൂർ പാലക്കാട് വഴിയാണ് സർവീസ്

ചെന്നൈ സ്വദേശികളായ ദീപക്ക് ആദിൽ രാജ് എന്നിവരാണ്കസ്റ്റഡിയിലാ യത്

എടവണ്ണ കണ്ടാരപ്പറ്റ സീതമ്മ എന്ന വീട്ടമ്മക്കാണ് പരിക്കേറ്റത്